ധീരതയെ മറികടക്കാൻ ലോകത്തെ ഒരു ശക്തിക്കും സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ ചരിത്ര പ്രസിദ്ധ്മായ ലോങ്കേവാല പോസ്റ്റിൽ സൈനികരോടൊപ്പം ദീപ്പാവ്ലി ആഘോഷിക്കുകയായിരുന്നു അദ്ദേഹ്ം

വോയ്സ് രാജ്യത്തെ ധീരമായിസംരക്ഷിക്കുന്ന സൈനൃം ഇന്ത്യയ്ക്ക് അഭിമാനമാണെന്ന് പ്രധ്യാന്മ്ന്ത്രി പറഞ്ഞു ലോങ്കേവാലയിൽ സൈന്യം പ്രകടിപ്പിച്ച് ്ട്ടീര്ത ഇന്ത്യൻ സൈന്യത്തിന്റെ മഹത്തായ ചരിത്രത്തിൽഎന്നുമുണ്ടാകുമെന്ന് പറഞ്ഞ അദ്ദേഹം പോരാട്ടത്തിൽ ത്യാഗംവരിച്ച സൈനികരുടെകുടുംബാംഗങ്ങൾക്ക്അഭിവാദനം അർപ്പിച്ചു ലോകം മുഴുവൻ ഇന്ന്അതിർത്തിവികസിപ്പിക്കുന്ന ശക്തികളാൽകലുഷിതമാണ്

ഈ ആശയത്തെ ശക്തമായിഎതിർക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണെന്നുംപ്രധാനമന്ത്രി പറഞ്ഞു മറ്റുള്ളവരെതിരിച്ചറിഞ്ഞും മറ്റുള്ളവർക്ക്തിരിച്ചറിയാവുന്ന രീതിയിലുംപ്രവർത്തിക്കണമെന്നതിലാണ് ഇന്ത്യ ഇന്ന് വിശ്വസിക്കുന്നത് എന്നാൽ നമ്മളെ വെല്ലുവിളിക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് തക്കതായമറുപടി രാജ്യം നൽകുമെന്ന് അദ്ദേഹം വൃക്തമാക്കി രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്താൻ എല്ലാവിധ നടപടികളും ഇന്ത്യ കൈക്കൊള്ളുന്നുണ്ട് തദ്ദേശീയ ആയുധ നിർമാതാക്കാളെ ഉൾപ്പെടുത്തി സ്വയംപര്യാപ്തതയിലൂന്നിയ പ്രതിരോധ മേഖല നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് രാജ്യ താൽപര്യത്തിൽവിട്ടുവീഴ്ചകൾ നടത്താത്ത രാജ്യമാണ്ഇന്തൃയെന്ന്ലോകംതിരിച്ചറിഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര വേദികളിൽവ്യക്തമായ നിലപാടുകളാണ്ഇന്ത്യകൈക്കൊള്ളുന്നതെന്നുംഅദ്ദേഹം പറഞ്ഞു ന്യൂസ്ഡസ്ക്

പൌരന്മാർക്ക് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമടക്കമുള്ള പ്രമുഖർ ആശ്ശംസകൾ നേർന്നിരുന്നു കേരള ഗവർണർ ആരിഫ്ട് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും മല്ലയാളികൾക്ക് ദീപാവലി ആശംസകൾ നേർന്നു കോവിഡ് മഹാമാരിയുടെ പ്രിച്ചാത്തലത്തിൽ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കിയാണ് ഇത്തവുണ്ട് ആഘോഷങ്ങൾ നടന്നത് മോശം അന്തരീക്ഷ സ്ക്ഷിതി കൂടി കണക്കിലെടുത്ത് ഡൽഹിയടക്കം പല സ്എസ്ഥാനങ്ങളിലും പടക്കങ്ങൾ നിരോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു

ലോക്സഭാസ്പീക്കർ ഓം ബിർള രാജ്യസഭ പ്രതിപക്ഷ നേതാവ്ഗുലാം നബി ആസാദ് തുടങ്ങിയ പാർലമെന്റ് അംഗങ്ങൾ പാർലമെന്റിന്റെ കേന്ദ്ര ഹാളിലുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ ഛായാചിത്രത്തിന് മുൻപിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

രണ്ട് പുതിയ ഹോട്ട് സ്പോട്ടുകളാണ് ഇന്നു പ്രഖ്യാപിച്ചത്

ഒന്നര കോടിയോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്

ആരാധനാലയങ്ങൾ സന്ദർശിക്കുമ്പോൾ മുഖാവരണം ധരിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നും ശ്രീ ഉദ്ധവ് താക്കറെ അറിയിച്ചു

രാജ്യത്തെ കായിക േമഖലയുടെ അടിസ്ഥാന തലം മുതലുള്ള സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഖേലോ ഇന്ത്യ

ബ്രസീൽ റഷ്യ ഇന്ത്യചൈന ദക്ഷിണാഫ്രിക്ക എന്നീ അംഗരാജ്യങ്ങൾക്കിടയിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള സഹകരണംയോഗത്തിൽ ചർച്ച ചെയ്തു കോവിഡ് മഹാമാരി പോലുള്ളൂ ആഗോള വെല്ലുവിളികളെ മറികടക്കാൻ ബഹുമുഖ്യ സഹകരണമാണ് വേണ്ടതെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്ക്രേത്രിക് മന്ത്രി ഹർഷവർധൻ യോഗത്തിൽ പറഞ്ഞു

കുട്ടികളുടെ അവകാശത്തിനായുള്ള അന്താരാഷ്ട്ര സംഘടന കിഡ്സ്റൈറ്റ് സാണ്അവാർഡ് നൽകുന്നത്

ഇന്റർനെറ്റ് സുരക്ഷയെപ്പറ്റി കുട്ടികൾക്ക് വ്യക്തമായ വിവരം നൽകുന്നതിനും സൈബർ ഭീഷണി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ട സഹായം നൽകുന്നതിനുമായിസൈബർ ടീൻസ് എന്ന പേരിൽ വികസിപ്പിച്ച മൊബൈൽ ആപ്പാണ്സാദത് റഹ്മാനെ അവാർഡിന് അർഹനാക്കിയത്

ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച സഹകരണ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് രാജ്യം സഹകരണ വാരം ആഘോഷിക്കുന്നത്

കേരളത്തിലെ സഹകരണ മേഖലയുടെ പ്രവർത്തനം രാജ്യത്തിന് തന്നെ അഭിമാനം പകരുന്നതാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഏതു പദ്ധതിയും ഏറ്റെടുക്കാൻ സന്നദ്ധമാകുന്നുവെന്നത് സഹകരണ മേഖലിയുടെ പ്രത്യേകതയാണെന്നും മുഖ്യമന്ത്രി പമുഞ്ഞു്

കേരളത്തിൽ ശിശുക്ഷേമ സ്ഥമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശിശുദിനാ്ല്ലോഷങ്ങൾ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

അന്തരീക്ഷ ഗുണനിലവാരം ഇനിയും മോശമാകുമെന്നാണ് സൂചന എന്നാൽ നാളെ ഉച്ചയ്ക്ക്ശേഷം സ്ഥിതി മെച്ചപ്പെടും എന്നു പ്രതീക്ഷിക്കപ്പെടുന്നു

വിദേശകാരൃ മന്ത്രി എസ്

കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും രാജകുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളും സൈന്യത്തിലെയും സുരക്ഷാസേനയുടെയും കമാൻഡർമാരും ചടങ്ങിൽ പങ്കെടുത്തു

കമ്പനി വികസിപ്പിച്ച അതി നൂതന ബഹിരാകാശവാഹനമായ ക്രൂ ഡ്രാഗൺ ക്യാപ്സൂൾ ഉപയോഗിച്ച് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ നടത്തുന്ന ആദ്യ സംരംഭമാണിത്